പ്രധാനമന്ത്രി ഇന്ന് അഹമ്മദാബാദ് പൂനെ ഹൈദരാബാദ് എന്നിവിടങ്ങൾ സന്ദർശിക്കും

പരിസ്ഥിതിമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തുടക്കം കുറിച്ചു

പ്രധാനമന്ത്രിയുടെ സന്ദർശനവും ശാസ്ത്രജ്ഞരുമായുള്ള് പ്രർച്ചകളും പ്രതിരോധമരുന്ന് വികസനത്തിലെ നിലവിലെ സ്ഥിതി സ്പ്ബന്ധിച്ച് കൃത്യമായ ധാരണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

അദ്ദേഹത്തിനായി പ്ലാന്റിന് സമീപം ഹെലിപാഡ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് പൂനെയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിൻ നിർമാണം വിലയിരുത്തും വാക്സിൻ വിജയകരമായാൽ ശേഷമുള്ള വിതരണ സംവിധാനത്തെക്കുറിച്ച് ശ്രീ മോദി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഹൈദ്രാബാദ് ഹക്കിമാപേട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങുന്ന ശ്രീ നരേന്ദ്രമോദി ഭാരത് ബയോടെക്കിലെ വാക്സിൻ നിർമാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി സഹകരിച്ചാണ് ബി ബി ഐ എൽ കോവിഡ് വാക്സിൻ നിർമിക്കുന്നത്

കാലാവസ്ഥാ പ്രശ്നങ്ങളെ ദേശീയ അന്തർദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകുന്നതാകും പോർട്ടലെന്ന് അദ്ദേഹം പറഞ്ഞു കാലാവസ്ഥാ വൃതിയാനം സംബന്ധിച്ചുള്ള ആധികാരിക വിവര കേന്ദ്രമായി പോർട്ടൽ പ്രവർത്തിക്കുമെന്ന് ചടങ്ങിൽ സംസരിക്കവെ കേന്ദ്രമന്ത്രി വവ്യക്തമാക്കി

കഴിഞ്ഞവർഷത്തെ ഇന്ത്യാസന്ദർശനത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം നിർമിതബുദ്ധി ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചിരുന്നതായി വ്യക്തമാക്കി

പ്രധാനമന്ത്രിയുടെ ആശംസകൾ കൈമാറിയ ശ്രീ ഡോവൽ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭകക്ഷി സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തി സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് എന്നിവയുടെ നാലാം എൻ എസ് എ തല ത്രിരാഷ്ട്ര യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് ശ്രീ അജിത് ഡോവൽ കൊളംബോയിലെത്തിയത്

നമ്മൾ തിരിച്ചുവരവിന്റെ പാതയിലാണും അദ്ദേഹം വ്യക്തമാക്കി

്ആദി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കേരളത്തില്ലെ കാലടിയിൽ ആദി ശങ്കര ഡിജിറ്റൽ അക്കാദമിക്ക് തുടക്കാർ കുറിച്ച് വെർച്ചൽ സംവിധാനത്തിലൂടെ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം

ജമ്മുകശ്മീരിലെ ആദ്യ ജില്ലാവികസന കൌൺസിൽ തിരഞ്ഞെടുപ്പാണിത്

ശൈത്യകാലത്ത് കോവിഡ് വ്യാപനം വ്യർദ്ധിച്ചേക്കുമെന്ന് ആശങ്ക കണക്കിലെടുത്താണ് നടപടി

പ്രതിവർഷം നൂറു ദശലക്ഷം ഡോസുകൾ ഇന്തൃയിൽ ഉത്പാദിപ്പിക്കാനാണ് തീരുമാനം

ഡിസംബർ ഒന്ന് മുതലാണ് ക്സാസുകൾ പുനഃസംഘടിപ്പിക്കുക

സംസ്ഥാന തിരഞ്ഞെടുപ്പു കമ്മീഷൻ ് നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകൾ കർശനമായി നടപ്പാട്ക്കാൻ ജില്ലാ കളക്ടർമാർ നടപടികളാരംഭിച്ചു

ചുഴലിക്കാറ്റിൽ സംസ്ഥാനത്തിന് നേരിട്ട നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

കേസിൽ കങ്കണയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് മേയറുടെ പ്രതികരണം

് ഇന്ന് വൈകുന്നേരം നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു എഫ് സിയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും